പരിഷ്കാരങ്ങൾ ഉറപ്പാക്കുന്ന ബില്ലിനും മന്ത്രിസഭായോഗിം അംഗീകാരം നല്കി

പൌരത്യ നിയമ ഭേദഗതിക്കെതിരെയുള്ള പരാമർശം വിയോജിപ്പുകളോടെ വായിക്കുന്നതായി നയപ്രഖ്യാപനത്തിൽ ഗവർണർ

ഇത് സംബന്ധിച്ച ബില്ലിനും മന്ത്രിസഭ അംഗീകാരം നൽകി കൂടുതൽ വിവരങ്ങളുമായി ജോസ്ന

നിലവിൽ രാജ്യസഭയുടെ പരിഗണനയിലാണ് ഈ ബിൽ

ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ ഈ പദ്ധതി തുറമുഖ മേഖലയിലെ മെച്ചപ്പെട്ട വൃവസായ ബന്ധവും സൌഹാർദ്ദപരമായ തൊഴിൽ അന്തരീക്ഷവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്

ഇരു രാജ്യങ്ങളും പരസ്പരം അംഗീകരിച്ചുകൊണ്ടുള്ള ഇന്ത്യ ഉദ്ദേശിക്കുന്നതെന്ന് വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ പറഞ്ഞു മേഖലയിലെ സമാധാനപരിഹാരവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്തൃ നിലപാട് വ്യക്തമാക്കിയത്

നടപടികൾ പ്രതിരോധ്പ് സംബന്ധിച്ച തയ്യാറെടുപ്പുകൾ കൊറോണ വിലയിരുത്തുന്നതിനായിട്ട്വിവിധ സംസ്ഥാന കേന്ദ്രഭരണപ്രദേശ പ്രതിനിധികളുമായി മന്ത്രാലയത്തിലെ പ്രത്യേക സെക്രട്ടറി സഞ്ജീവ കുമാർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കൂടിയാലോചന നടത്തി കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ചൈനയിലേക്കുള്ള അനാവശൃ യാത്രകൾ ഒഴിവാക്കാൻ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചൈനയിൽ നിന്നെത്തിയ യാത്രക്കാർ തങ്ങളുടെ ആരോഗ്യനില സൂക്ഷ്മമായി പരിശോധിക്കണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്

കുറഞ്ഞ ചെലവിനു പുറമേ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനും ഈ ഇന്ധന രൂപങ്ങൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗതാഗത രംഗത്ത് ഭാവിയിൽ ഉപയോഗിക്കാവുന്ന ഇന്ധനങ്ങളെപ്പറ്റിയുള്ള സമ്മേളനത്തിൽ ന്യൂഡൽഹിയിൽ സ്ഫസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി

ജസ്റ്റിസ് ആർ

രാഷ്ട്രപതി ദയാഹർജി അതിവേഗം തള്ളിയതിന് ഹർജികൾ ശ്രദ്ധാപൂർവ്വമല്ല പരിഗണിച്ചതെന്ന അർത്ഥമില്ലെന്ന് ജസ്റ്റിസ് ഭാനുമതി വ്യക്തമാക്കി ദ യാഹർജി പരിഗണിക്കും മുൻപ് വിചാരണ കോടതിയുടെയും ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധിന്യായങ്ങളും മറ്റ് സുപ്രധാന രേഖകളും രാഷ്ട്രപതിക്കു സമർപ്പിച്ചിരുന്നു അതേസമയം കേസിലെ മറ്റൊരു പ്രതിയായ അക്ഷയ് കുമാർ ക്യുറേറ്റീവ് ഹർജിയുമായി സുപ്രീം ക്ലോട്തിയെ സമീപിച്ചിട്ടുണ്ട്

ഇക്കാര്യത്തിൽ വ്യക്തിപരമായ വിയോജിപ്പ് രേഖപ്പെടുത്തികൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗം പൌരത്വം മതത്തിന്റെ അടിസ്ഥാനത്തിലാകാൻ കഴിയില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഈ ഖണ്ഡികയിൽ പൌരത്വ ഭേദഗതിക്കെതിരെ സംസ്ഥാന നിയമസഭ പാസാക്കിയ പ്രമേയത്തെകുറിച്ചും പരാമർശിക്കുന്നു

അതിനിടെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം പ്രതിപക്ഷം ബഹിഷ് കരിച്ചു

കടലാസ് രഹിത നിയമസഭാ നടപടികൾക്ക് തുടക്കമാകുന്ന ഈ സമ്മേളനം ചരിത്രപരമായ മുഹൂർത്ത്മാണെന്നും ഗവർണർ പറഞ്ഞു

എംഎൽഎ മാരായ അൻവർ സാദത് ടിവി ഇബ്രാഹിഠ എൽദോസ് കുന്നപ്പിളളി എം എം വിൻസെന്റ് എന്നിവർക്കെതിരെ കടുത്ത ബലപ്രയോഗം നടത്തിയതായാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം

പി പർവേഷ് സാഹിബ് സിംഗ് എന്നിവരെ അടിയന്തിരമായി നീക്കണ്ണമെന്ന് തിരഞ്ഞെടുപ്പ് ഉത്തരവ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കമ്മീഷൻ ഇരുവരും വിവാദ പൂരാമ്പർശ്ങൾ നടത്തിയെന്ന ആരോപണത്തിനു പിന്നാലെയാണ് നടപടി

ഡൽഹിയിലെ വികാസ്പുരിയിൽ നടന്ന റാലിക്കിടെ പ്രകോപനപരമായ ഭാഷയിൽ പർവേഷ്സിംഗ് സംസാരിച്ചെന്ന് ഡൽഹി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ തിരഞ്ഞെടുപ്പ് കമ്മീഷന് റിപ്പോർട്ട് നൽകിയിരുന്നു

ജെ

ജെ

യിൽ ചേരാൻ അവസരം ലഭിച്ചത് വലിയ അംഗീകാരമാണെന്ന് സൈന പറഞ്ഞു

പാർട്ടി വൈസ് പ്രസിഡന്റ് കിഷോറിനെയും ജനറൽ സെക്രട്ടറി പവൻ കുമാറിനെയുമാണ് അധ്യക്ഷ്നും ബിഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാർ പുറത്താക്കിയത്

വടക്കൻ മഹാരാഷ്ട്രയിലെ മേഷി ഫട്ടയിൽ ഇന്നലെ ട്രാൻസ്പോർട്ട് ബസ് ഓട്ടോറിക്ഷയുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്

ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു

ഹാമിൽട്ടണിൽ ഇന്ന് നടന്ന മത്സരത്തിൽ സൂപ്പർ ഓവറിൽ നേടിയ ഉജ്ജല വിജയമാണ് സന്ദർശകർക്ക് പരമ്പര സമ്മാനിച്ചത് സൂപ്പർ ഓവറിൽ ആതിഥേയർ ഉയർത്തിയ വിജയലക്ഷ്യം ഇന്ത്യ അവസാന പന്തിൽ മറികടക്കുകയായിരുന്നു